ഏഷ്യൻ വികസന ബാങ്കും ഏഴായിരം കോടി രൂപ വീതം വരുന്ന പദ്ധ തികൾക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാനത്തെ റോഡുകൾ ഡിസംബറോടെ മികച്ച നിലയിലാക്കുമെന്ന്

ഒരുങ്ങി ഖെലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ നാലു സ്വർണ്ണം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് മുംബൈ

രാജ്യത്ത് റോഡ് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് അപകട സാദ്ധ്യ തയുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ ഇല്ലാതാക്കാൻ ലോകബാങ്കും ഏഷ്യൻ വിക സന ബാങ്കും ഏഴായിരം കോടി രൂപ വീതം വരുന്ന പദ്ധതികൾക്ക് അംഗീ കാരം നൽകിയതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്തെ റോഡപകടങ്ങൾ നാല് ശതമാനം വർദ്ധിച്ചതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ന്യൂഡൽഹിയിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നിതിൻ ഗഡ്കരി സംസ്ഥാനത്തെ റോഡുകൾ ഡിസംബർ മാസത്തോടെ മികച്ച നിലയിലാക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു പ്രളയത്തിൽ തകർന്ന ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് കൂടുതൽ തുക ആവശ്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ തട്ടാരി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കു ന്നതിന് സംസ്ഥാനം വിഹിതം നൽകണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്ന് തുക കണ്ടെത്തി ദേശീയപാതാ അതോറിറ്റിക്ക് കൈമാറിയതായും മുഖ്യമന്ത്രി പറഞ്ഞു

പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഗവൺമെൻറിനൊപ്പം നാടിന്റെ പങ്കാളിത്തവും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ ്വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിനു നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പിണറായി

ടൂറിസം പ്രോത്സാഹിപ്പിച്ചും സമുദ്രോത്പന്നങ്ങളുടെയും നാളികേര അധിഷ്ടിത ഉത്പന്നങ്ങളുടെയും കയറ്റുമതിക്ക് സൌകര്യങ്ങൾ ഒരുക്കിയും ദ്വീപുകളുടെ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ദ്വീപ് വികസന ഏജൻസി യുടെ ആറാമത്തെ യോഗത്തിലാണ് തീരുമാനം രാജ്യത്ത് ആദ്യമായാണ് ദ്വീപ് വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ സുസ്ഥിര വികസന പദ്ധതി നടപ്പിലാക്കുന്നത്

പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് വിളിച്ചുചേർത്ത പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം ആവശ്യപ്പെട്ടു ദേശീയ പൌരത്വ രജിസ്റ്റർ ജനസംഖ്യാ രജിസ്റ്റർ നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും യോഗം ഉന്നയിച്ചു ഇവ ഭര ണഘടനാ വിരുദ്ധമാണെന്നും പാവങ്ങളെയും അധഃസ്ഥിതരെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഡോക്ടർ മൻമോഹൻസിംഗ് രാഹുൽ ഗാന്ധി ശരത് പവാർ സീതാറാം യെച്ചൂരി ഡി രാജ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു

കെ എസ് പി ബി എസ് പി തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ശിവസേന നേതാക്കൾ വിട്ടുനിന്നു

ന്യൂനപക്ഷ ങ്ങളോട് കാടത്ത നിലപാട് സ്വീകരിക്കുന്ന ഇസ്ലാമാബാദിനെ തുറന്ന് കാണി ക്കാൻ ലഭിക്കുന്ന അവസരമാണ് നിയമഭേദഗതിയെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാന പാർട്ടികൾ വിട്ടുനിന്നതോടെ പ്രതിപക്ഷ ഐക്യം വെളിപ്പെട്ടുവെന്ന് രവിശങ്കർ പ്രസാദ് അഭിപ്രായപ്പെട്ടു

ഇതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കും

ഉള്ളി യുൾപ്പെടെ പച്ചക്കറി വിലയിലുണ്ടായു വർദ്ധനയാണ് പണപ്പെരുപ്പ നിരക്ക് ഉയരാൻ കാരണം മകര സംക്രമ പൂജയ്ക്കും മകര ജ്യോതി ദർശനത്തിനും സന്നി ധാനം ഒരുങ്ങി

ഇന്നു രാത്രി നട അടയ്ക്കില്ല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച തിരു വാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും

് മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയില പരുന്തുംപാറ പാഞ്ചാലിമേട് പുല്ലുമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ അയ്യപ്പഭക്തൻമാർ ആഴികൂട്ടുന്നതും കർപ്പൂരം കത്തിക്കുന്നതും ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ ദുരന്തനിവാരണ അതോറ്റിറി ചെയർമാൻ കൂടിയായ ഇടുക്കി ജില്ലാ കലക്ടർ നിരോധിച്ചു ് ബി എസ് എഫിന്റെ ഭാരത് ദർശൻ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെത്തിയ കശ്മീരി വിദ്യാർത്ഥികളുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തി

ഇന്ത്യയുടെ വലിപ്പവും വൃതൃസ്ത ഭാഷകളും വൈവിധൃങ്ങളും മനസ്സിലാ ക്കാൻ യാത്ര വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന് ഗവർണർ പറഞ്ഞു

കേരളത്തിന് ഇന്നലെ നാലു സ്വർണ്ണം ലഭിച്ചു

അത്ലറ്റി ക്സിൽ മാത്രം ആറു സ്വർണ്ണം നേടിയ കേരളം തമിഴ്നാടിനും ഹരിയാ നയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ്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

കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം ഇന്ന് വൈകുന്നേരം പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര നടത്തും

ലോക ചെസ് ഫെഡറേഷൻ മുൻ വൈസ് പ്രസിഡന്റ് പി ടി ഉമ്മർകോയ കോഴിക്കോട്ട് അന്തരിച്ചു

ഖബറടക്കം രാവിലെ ഒൻപതിന് കോഴിക്കോട് കണ്ണംപറമ്പിൽ നടക്കും

കൾ നിർമ്മിച്ചുനൽകുമെന്ന് മന്ത്രി ടി

കല്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് മിഷൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം ബീവറേജസ് കോർപറേഷന്റെ സി

ആർ ഫണ്ടിൽ നിന്നും നാലു കോടി രൂപ ഇതിനായി ചെലവിടുമെന്നും മന്ത്രി അറിയിച്ചു

അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എം

കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും അദാലത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ് മലപ്പുറം വഴിക്കടവ് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനവും കുടുംബസംഗമവും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജനക്ഷേമത്തിനായി പ്രവർത്തിച്ച് ജനാധിപതൃത്തിൽ പുതുചരിത്രം രചിക്കാൻ തദ്ദേശ സ്വയംഭരണപ്രവകുപ്പിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാധിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു

ഇളവിന് ശേഷമുള്ള കുടിശ്ശിക മൂന്നു മാസ ത്തിനകം അടച്ചുതീർക്കണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു അഗളിയിൽ പാലക്കാട് ജില്ലാതല ഭവന നിർമ്മാണ വായ്പ കുടിശ്ശിക നിവാരണ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കു കയായിരുന്നു മന്ത്രി നിശ്ചിത സമയ പരിധിക്കുശേഷം നിയമ നടപടികളുമായി മുന്നോട്ടുപോകുമെന്നും മന്ത്രി അറിയിച്ചു

ചന്ദ്രശേഖരൻ പറഞ്ഞു പാലക്കാട് കാരാകുറുശ്ശി വില്ലേജ് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഫയർ റെസ്പോണ്ടർ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് സെക്രട്ടേറിയറ്റ് അന ക്സിൽ മന്ത്രി കെ രാജു നിർവഹിച്ചു വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പരമ്പരാഗതമായി പിന്തുടരുന്ന രീതികൾക്കൊപ്പം അത്യന്താധുനിക സംവി ട ധാനങ്ങളുടെ സഹായം ഉപയോഗപ്പെടുത്തി പ്രവർ ത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു

നടപടി സംസ്ഥാനത്ത് പൂർണമാവുക യാണെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ അറിയിച്ചു

കേരളം വിദ്യാഭാസ മേഖലയിൽ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമാക്കാൻ ഒരുങ്ങുകയാണെന്ന് മന്ത്രി പ്രെഫ സി

വിയോജിപ്പുളള വിഷയങ്ങളിലും ആ വിയോജനം കേൾക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ മധുരമായ വശമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു പൌരത്വനിയമഭേദഗതി വിഷയ ത്തിൽ കോഴിക്കോട് കുറ്റിയാടിയിൽ ബി ജെ പി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പൌരത്വനിയമഭേദഗതി വിഷയത്തിൽ പ്രതിപക്ഷം സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുപ്പ് നടത്തുക യാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ

കോഴിക്കോട് നരിക്കുനിയിൽ ജനജാഗ്രതാ സദസ്സിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം

പുരുഷൻമാരെ ശിക്ഷിക്കാനാകില്ലായെന്ന് വനിത കമ്മീഷൻ അധ്യക്ഷ എംസി ജോസഫൈൻ അറിയിച്ചു കമ്മീഷനിൽ പരാതി നൽകിയിട്ട് വാദിയും പ്രതിയും ഹാജരാകാതിരിക്കുക പരാതിക്കാസ്പദമായ സംഭവം കമ്മീഷനുമുന്നിൽ വിശദീകരിക്കാനാകാതിരിക്കുക എന്നിവയൊക്കെ പരാതിയുടെ വിശ്വാസ്യതയിൽ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് ഇടുക്കി യിൽ മെഗാ വനിതാ കമ്മീഷൻ അദാലത്തിൽ അവർ വ്യക്തമാക്കി